വിദ്യാർത്ഥികളെ അഭിന്ന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രാജ്യത്തെ അഭിസംബോധന ചെയ്യും

ജി എസ് ടി നഷ്ടപരിഹാരം അനുവദിച്ചു

അദ്ദേഹം അഭിനന്ദിച്ചു

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ എപ്പിക് പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര നിയമ മന്ത്രി രവി ശങ്കർ പ്രസാദ് ചടങ്ങിൽ നിർവഹിച്ചു

യുവാക്കൾക്കിടയിൽ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വർധിപ്പിക്കാനുമുളള ദിവസമാണ് ഇതെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

ചെറിയ ആശയങ്ങൾ ശരിയായ പ്രവർത്തികളുമായി സംയോജിക്കുമ്പോൾ വലുതും കാര്യക്ഷമവുമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഉദാഹരണമാണ് ഈ പുരസ്കാരമെന്ന് പുരസ്കാര ജേതാക്കളുമായി സംവദിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു കൂട്ടികളുടെ ഈ പുരസ്കാര നേട്ടം നിരവധി പേർക്ക് പ്രചോദനമേകുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

നൂതന ആശയങ്ങൾ പഠന പ്രവർത്തനങ്ങൾ കലാകായിക രംഗത്തേയും സാമൂഹിക രംഗത്തേയും മികവ് ധീരത എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്

ആകാശവാണിയിലും ദൂരദർശനിലും വൈകുന്നേരം ഏഴ് മുണി മുതൽ ഇത് കേൾക്കാം

കേരളത്തിൽ നിന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ജെ സജികുമാർ ഡെപ്യൂട്ടി സൂപ്രണ്ട് എം വി തോമസ് എന്നിവർ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹരായി

കേരളത്തിൽ നിന്നുള്ള അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എ ജോർജിന് വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരവും കെ അബ്ദുൾ റഷീദ് പി നാസർ എന്നിവർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു

വിശദാംശങ്ങളുമായി കിരൺശങ്കർ

രാജ്യത്തെ രോഗബ്ലാധിത്രുടെ എണ്ണം കുറഞ്ഞ് വരുന്നതായും ഒരു കോടി ദ ദ ലക്ഷത്തിലധിക്ക് പ്പേർ കോവിഡിൽ നിന്നും മുക്തരായതായും മന്ത്രാലയം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു ലക്ഷത്തി ഒൻപതിനായിരം കോടി രൂപയാണ് ഇതിലൂടെ നൽകിയത്

റിപ്പോർട്ട് വ്യാജമാണെന്ന് പ്രിസ്ട് ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു

കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലും എം ശ്രീവശങ്കറിന് ഇന്ന് ജാമ്യം ലഭിച്ചിരുന്നു ദിവസത്തിനുള്ളിൽ കുറ്റപത്രം ്സമർപ്പിക്കാത്ത സാഹചരൃത്തിലാണ് ജാമ്യം ഇനി ഡോളർ കടത്ത് കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ശിവശങ്കറിന് പുറത്തിറങ്ങാനാകും

ബി ഐയ്ക്ക് വിട്ട നടപടിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒന്നും ചെയ്യാതിരുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വവും കഴിവില്ലായ്മയുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോഴത്തെ നടപടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്നും ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു

കുംഭമേളയിൽ പങ്കെടുക്കുന്നവർ ഉത്തരാഖണ്ഡ് സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം അതത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്

പ്രദേശത്തെ വനത്തിനുള്ളിൽ നിന്നാണ് നോട്ടുകൾ പിടിച്ചെടുത്തത്

സ്ഫോടക വസ്തുക്കളും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്

എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്

ജംഷഡ്പൂർ ഹൈദരാബാദ് മത്സരം ഗോൾരഹിതമായും ബംഗളുരൂ ഒഡിഷ മത്സരം ഓരോ ഗോൾ വീതം നേടിയുമാണ് സമനിലയിൽ അവസാനിച്ചത്